പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വർദ്ധിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ്കേന്ദ്രസർക്കാർ നിർദ്ദേശം

കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി

ഔഷധങ്ങൾ ഓക്സിജൻ വ്യിന്റിലേറ്റർ വാക്സിനേഷൻ തുടങ്ങിയവയുടെ ലഭ്യതയെപ്പറ്റി യ്ക്കാം വിലയിരുത്തി കോവിഡ് രോഗികൾക്ക് ആശുപത്രി കിടക്കുകൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്ര്യ്ാനമ്ന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു റെംഡെസിവിർ മരുന്നിന്റെ ഉത്പാദനം പരമാവധി വർദ്ധിപ്പിച്ചതായി യോഗത്തിൽ ഉദ്യോഗസ്ഫർ അറിയിച്ചു ഓക്സിജൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്ലാന്റുകൾ സജ്ജമാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു പരിശോധന കണ്ടെത്തൽ ചികിത്സ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രീ മോദി ആവശ്യപ്പെട്ടു

ആശുപത്രികളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി ആസൂത്രണങ്ങൾ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്

ഹർഷ് വർദ്ധന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗമാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നല്കിയത് രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്ന് ആവർത്തിച്ച ആരോശ്യമന്ത്രി വാക്സിനേഷൻ നടപടികൾ കൂടുതൽ വേഗത്തില്ലാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

കേന്ദ്രസർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് മരുന്നു കമ്പനികൾ വിലകുറക്കാൻ തയ്യാറായത് രാജ്യത്ത് പ്രതിദിന രോഗബാധ കൂടിയതോടെ ആണ് റെംഡെസിവിർ മരുന്നിന് ക്ഷാമം അനുഭപ്പെട്ടു തുടങ്ങിയത്

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി ഭൂപേശ് ബാഗേൽ നാല് ലക്ഷം രൂപാവീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു

ഒരു റിപ്പോർട്ട്

അടിയന്തിര സേവനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും മാത്രമേ ഞായറാഴ്ചകളിൽ അനുവദിക്കൂ

ആവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭോപ്പാൽ കളക്ടർ അവിനാശ് ലവാനിയ പറഞ്ഞു

കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ മഹാരാഷ്ട്രയിലെ ബൃഹൻ മുംബൈ മുൻസിപ്പൽ കോർപ്പറേഷനിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുമെന്ന് മേയർ അറിയിച്ചു

ഗുജറാത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാ ക്കാൻ ആരോഗ്യ വിദഗ്ദ്ധരുടെ പ്രത്യേക സംഘത്തെ കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട്

ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്

കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യചടങ്ങുകൾ നടത്തുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങി വിവാഹം ഗൃഹപ്രവേശനം തുടങ്ങിയ ചടങ്ങുകൾ നടത്താൻ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യണം

ഇതുമായി ബന്ധപ്പെട്ട് കർശന പരിശോധനയ്ക്കും നിർദ്ദേശമുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണമാണുള്ളത് അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്നും അവശ്യസാധനങ്ങളുടെ കൂടകൾ രാത്രി ഏഴു മണിവരെ മാത്രമെ പ്രവർത്തിക്കാവൂ എന്നും ്ജില്ലാകളക്ടർ അറിയിച്ചു

എല്ലാ ഞായറാഴ്ചകളിലും കോഴിക്കോട് നീയന്ത്രണങ്ങൾ തുടരും

കോവിഡ് വ്യാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പ്രതിരോധ നടപടികളെ തുടർന്നാണ് തീരുമാനം ഇക്കാരൃം സൂചിപ്പിച്ച് മേഖലാ ജനറൽ മാനേജർമാർക്ക് കേന്ദ്ര റെയിൽവെ മന്ത്രാലയം കത്തയച്ചു

ത്ധാർഖണ്ഡ് മിസോറാം ഒഡീഷ ഛത്തീസ്ഗഡ് അസം ബീഹാർ അരുണാചൽ പ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വൃതിയാനം തടയുന്നതിന് മുൻഗണന നൽകി നടപടികൾ സ്വീകരിക്കണമെന്നും ശാസ്ത്രസാങ്കേതിക വകുപ്പ് പുറത്തിറക്കിയു റിപ്പോർട്ടിൽ പറയുന്നു

അശുതോഷ് ശർമ്മാപ്റഞ്ഞു

ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂൾ റോയൽ ചലഞ്ചേഴ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായും രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിംഗ്സുമായും ഏറ്റുമുട്ടും

ഉത്തരാഖണ്ഡില്ലെ പ്രഹ്മരിദ്ധാറിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാന് സന്യാസി സമൂഹമാണ് ജുന അഖാഡ പ്രതീകാത്മകമായി മാത്രം കുംഭമേള നടത്തിയാൽ മതിയെന്ന പ്രധാനമന്ത്രിയുട്ടി ആഹ്വാനത്തിന് പിന്നാലെയാണ് ജുന അഖാഡ തീരുമാനം പ്രിപ്പ്യാപിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ് പരിഗണനയെന്ന് ജുന അഖാഡയുടെ മുഖ്യദർശകൻ സ്വാമി അവ്ദേശാനന്ദ് ആചാര്യ പറഞ്ഞു

ഈ മാസം നാല് മുതൽ കുംഭമേളയിൽ പങ്കെടുത്തവർ വ്യക്തിഗത വിവരങ്ങളും യാത്രാവിശദാംശങ്ങളും ഡൽഹി സർക്കാരിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ ചെയ്യാത്തവർ നിയമനടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഡൽഹി സർക്കാർ വൃക്തമാക്കി ഗുജറാത്തിൽ നിന്ന് കുംഭമേളയിൽ പങ്കെടുത്തവർ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്നും രോഗബാധ കണ്ടെത്തിയാൽ കാറന്റൈനിൽ പോകണമെന്നും മുഖ്യമന്ത്രി വിജയ് രൂപാണി പറഞ്ഞു

ക്യോവിഡ് പ്രോട്ടോകോൾ പാലിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരോട് നന്ദി പറഞ്ഞു

ഇതോടെ കാസ്ട്രോ കുടുംബത്തിന്റെ പാർട്ടിയിലെ ആറ് പതിറ്റാണ്ട് നീണ്ട ആധിപത്യത്തിനാണ് സമാപനമാകുന്നത് ക്യൂബയുടെ പ്രസിഡന്റ് മിഗേൽ ഡ്യൂയസ് കനേലിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹം കൈമാറി

രോഗബാധയും മരണങ്ങളും ആശങ്കാജനകമായ നിരക്കിൽ വർദ്ധിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ക് ടെഡ്രോസ് അഥനോം ഗബ്രിയാസിസ് പ്രത്യേക മന്ത്രിതലൂ ട്യോഗത്തിൽ പറഞ്ഞു മുമ്പ് കോവിഡ് പകരുന്നത് പ്രതിരോക്കിച്ചും ചില രാജ്യങ്ങളിൽ ഇപ്പോൾ അണുബാധ കുത്തനെ വർദ്ധിക്ക്ക്ന്നതായും അദ്ദേഹം പറഞ്ഞു

വാക്സിനേഷൻ തുല്യത ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു